പശ്ചിമബംഗാളിലും പ്രചാരണത്തിന് ആവേശമേറുന്നു

രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് ന് സ്വീകരിച്ചവരുടെ എണ്ണം ഏഴ് കോടി കടന്നു ചരിത്ര നേട്ടമെന്ന് ആരോഗൃ മന്ത്രാലയം

സി നേതാവ് മമതാ ബാനർജി അണികൾക്ക് ആവേശം പകരാനെത്തും

കോൺഗ്രസ് നേതാവും ഛത്തീസ്മുഡ് മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബഘേൽ ഇന്ന് ബർപ്പേട്ട ബോംഗായ്ഗാവ് ജില്ലകളിലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെട്ടുക്കും

ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഒരു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയ സാഹചര്യത്തിലാണ് വീണ്ടും വോട്ടെടുപ്പിന് നിർദ്ദേശം നൽകിയത്

ബോഡോലാൻഡ് പീപ്പിൾസ് പാർട്ടി നേതാവ് ഹഗ്രാമ മൊഹിലാരിക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്നാണ് നടപടി

പോളിങ് ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി എത്തിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി നേരത്തെ നാല് പോളിങ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു

വ്യാഴാഴ്ച ബിജെപി സ്ഥാനാർത്ഥിയുടെ കാറിൽ വോട്ടിങ് യന്ത്രങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് വിവാദമായത്

കൊട്ടിക്കലാശം ഒഴിപ്പുക്കിയതിനാൽ അവസാന ഘട്ട പ്രചാരണം കൊടുമ്പിരി കൊണ്ടു

വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി

കോവിഡ് പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കേസ് എടുക്കും

തിങ്കളാഴ്ച രാവിലെ മുതൽ ഉദ്യോഗസ്ഥർ ഇവ ഏറ്റുവാങ്ങി ബൂത്തുകളിലേക്ക് നീങ്ങും

സംഭവത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കമ്മീഷൻ വിവാദങ്ങളിലെ വസ്തുതകൾ പരിശോധിക്കുന്നതിനായി ബിഹാർ മുഖൃ തിരഞ്ഞെടുപ്പ് ഓഫീസറെ കേരളത്തിലേക്ക് അയച്ചു

തെരഞ്ഞെടുപ്പു കഴിയുന്നതുവരെ സംഘം കേരളത്തിൽ തുടരും

തുടർന്ന് ചേർത്തലയിൽ നടക്കുന്ന എൻ

കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കണ്ണൂർ കൂത്തുപറമ്പിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും രാഹുൽഗാന്ധി എംപി ഇന്ന് വീണ്ടും കേരളത്തിലെത്തും രാവിലെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം കൊയിലാണ്ടിയിലും പുറമേരിയിലും നടക്കുന്ന യുഡിഎഫ് പ്രചാരണ പരിപാടികളിൽ സംബന്ധിക്കും

കേന്ദ്ര വിദേശകാരൃ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ എൻ

കേന്ദ്രമന്ത്രി പ്രൾഹാദ് ജോഷി ഇന്ന് കുന്നത്തൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും

എഫ് മാനന്തവാടി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സി

ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാ കാരാട്ട് നയിക്കുന്ന റോഡ് ഷോ നാളെ മാനന്തവാടിയിൽ നടക്കും

ഐ നേതാവ് കനയ്യ കുമാർ ഇന്ന് ആലപ്പുഴയിൽ എൽ

എഫ് യോഗങ്ങളിൽ സംസാരിക്കും

അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകളിൽ ത്ുടർച്ചയായ വർധനയാണ് രേഖപ്പെടുത്തുന്നത്

ജി എച്ച് എസ് പ്രകാരം പെൻഷൻകാർക്ക് റീ ഇമ്പേഴ്സ്മെന്റ് ലഭിക്കുമെന്ന് ചില സാമൂഹൃമാധൃമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പി ഐ ബി അറിയിച്ചു

ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഇന്ധനത്തെ ആശ്രിയിക്കുന്നത് കുറയ്ക്കാനായി റെയിൽവേ അടുത്ത കാല്പത്ത് വൈദ്യുതീകരണത്തിന് പ്രാമുഖ്യം നിൽകുന്നുണ്ട്

സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഈ ട്രെയിനുകളിൽ ഉറപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ ട്വീറ്റ് ചെയ്തു

അതത് ഭരണകൂടങ്ങൾ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്

പുരുഷ വിഭാഗം ഡബിൾസ് ഫൈനലിൽ ബ്രിട്ടന്റെ ഡാൻ ഇവാൻസ് നീൽ സ്കുപ്സി സഖ്യം ക്രൊയേഷ്യയുടെ നിക്കോള മെക്റ്റിക് മേറ്റ് പേവിക് സഖ്യത്തെ നേരിടും

ഉസ്ബെക്കിസ്ഥാൻ സന്ദർശന വേളയിൽ അന്താരാഷ്ട്ര ബോക്സിങ് അസോസിയേഷൻ മേധാവി ഉമർ ക്രംലേവാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്

മേയ് രണ്ടിന് വോട്ടെണ്ണുമ്പോൾ മമത ബാനർജി അധികാരത്തിൽ നിന്ന് പുറത്താകും വടക്കൻ ബംഗാളിനോട് മമത ബാനർജി അന്യായമാണ് കാട്ടിയതെന്ന് ശ്രീ അമിത് ഷാ ആരോപിച്ചു